തെരഞ്ഞെടുപ്പ് പ്രചാരണച്ചൂടിൽ കേരളം പ്രചാരണത്തിനായി ദേശീയ നേതാക്കൾ സംസ്ഥാനത്തേക്ക്

കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ ഇന്ന് കേരളത്തിലെത്തും

എം ജിന്റൽ സെക്രട്ടറി സീതാറാം യച്ചൂരിയും കോൺഗ്ര്സ് നേതാവ് രാഹുൽ ഗാന്ധിയും പ്രചാരണ പരിപ്പാടികളിൽ പങ്കെടുത്തു

അടുത്തമാസം ഒന്ന് മുതൽ കോവിഡ് വാക്സിൻ നല്കാൻ കേന്ദ്രമന്ത്രീസഭാ തീരുമാനം

പുരസ്കാരം കേരളം സ്വന്തമാക്കി

റൺസ് വിജയലക്ഷ്യം

തിരക്കിട്ട പ്രചാരമാണ് മുന്നണികൾ ് മണ്ഡലങ്ങളിൽ കാഴ്ച വയ്ക്കുന്നത് ദേശീയ നേതാക്കളെയടക്കം സംസ്ഥാനത്തെത്തിച്ച് പ്രചാരണത്തിന്റെ തിളക്കം കൂട്ടാനുള്ള നീക്കത്തിലാണ് മുന്നണികൾ

ഇന്ന് രാത്രി നെടുമ്പാശ്ശേരിയിലെത്തുന്ന അദ്ദേഹം നാളെ തൃപ്പുണിത്തുറയിൽ നടക്കുന്ന റോഡ്പ് ഷോയിൽ പങ്കെടുക്കും പിന്നീട് കോട്ടയം കാഞ്ഞിരപ്പള്ളിയിലൂർ കൊല്ലം പുറ്റിങ്ങലിലും ശ്രീ

വൈകുന്നേരം പാലക്കാട് കഞ്ചിക്കോട് നടക്കുന്ന റോഡ്ഷോയിൽ പങ്കെടുത്ത ശേഷം അദ്ദേഹി കോയമ്പത്തൂരിലേക്ക് പോകും പ്രധാനമന്ത്രി നരേന്ദ്ര മ്മോദിയുട് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയും ഉൾപ്പെടെയുള്ള ദേശ്വീയ നേതാക്കളും വരും ദിവസങ്ങളിൽ എൻഡിഎയുടെ പ്രചാരണ്ടത്തിനായി സംസ്ഥാനത്തെത്തും യെച്ചൂരി സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഇന്ന് കണ്ണൂരിലും കാസർഗോഡും തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു എല്ലാത്തരം വെല്ലുവിളികളേയും അതിജീവിച്ച സർക്കാരാണ് മുഖൃമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ളതെന്നും സർക്കാരിന് തുടർഭരണം ഉറപ്പാണെന്നും അദ്ദേഹം കാസർഗോഡ് പറഞ്ഞു സീതാറാം യെച്ചൂരിയ്ക്ക് പുറമേ പ്രകാശ് കാരാട്ട് ബൃന്ദ കാരാട്ട് എസ് രാമചന്ദ്രൻ പിള്ള തുടങ്ങിയ മുതിർന്ന സിപിഐഎം നേതാക്കളും എൽഡിഎഫ് പ്രചാരണത്തിനായി സംസ്ഥാനത്തെത്തുന്നുണ്ട് രാഹുൽ ഗാന്ധി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് കോട്ടയത്തും എറണാകുളത്തും പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു യുഡിഎഫ് അധികാരത്തിലെത്തിയാൽ ന്യായ് പദ്ധതി നടപ്പിലാക്കുമെന്ന് അദ്ദേഹം കോട്ടയത്ത് പറഞ്ഞു

പിറവത്തും മൂവാറ്റുപുഴയിലും നടന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിലും ശ്രീ രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നു മുഖ്യമന്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ആലപ്പുഴ ജില്ലയിലെ അഞ്ച് കേന്ദ്രങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു തെരഞ്ഞെടുപ്പിന്റെ അവസാന നാളുകളിൽ അപ്രതീക്ഷിത സംഭവങ്ങളുണ്ടാക്കി വലിയ വൈക്ടാരികത സൃഷ്ടിക്കാൻ സംസ്ഥാനത്ത് ശ്രമം നടന്നേക്കുമെന്ന് മുഖ്യമന്ത്രി ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു വികസിത രാജ്യങ്ങൾ പോലും കോവിഡിന് മുന്നിൽ വിറച്ചപ്പോൾ കേരളം പ്രത്റീയില്ലെന്നും സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹ്ബ്ബാക്കി മാറ്റുമെന്നും അദ്ദേഹം അറിയിച്ചു

അതേ സമയം വോട്ടർ പട്ടികയിൽ മറ്റൊരു ക്രമക്കേട് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് കത്ത് നൽകിയിരുന്നു ഒരേ വൃക്തിയുടെ ് ഫോട്ടോ ഉപയോഗിച്ച് മറ്റ് പേരുകളിലും വിലാസങ്ങളിലും വോട്ടർമാരെ സൃഷ്ടിക്കുന്നതായാണ് പരാതി

ജില്ലയിലെ കൂടുതൽ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി കോട്ടയത്തു നിന്നും ആകാശവാണി പ്രതിനിധി ടോം മാത്യു

കഴിഞ്ഞ ദിവസം ഈരാറ്റുപേട്ട തേവരുപാറയിൽ പി സി ജോർജിന്റെ മണ്ഡല പര്യടനത്തിനിടെ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു

സ്ഥാനാർഥിക്ക് പിന്തുണ ഉറപ്പാക്കാൻ യുഡിഎഫ് നേതൃയോഗം ചേർന്നു

പോളിംഗ് സ്റ്റേഷനിൽ പോയി വോട്ട് രേഖപ്പെടുത്താൻ സാധിക്കാത്ത അവശ്യ സർവീസ് മേഖലയിലെ ജീവനക്കാർക്കാണ് പോസ്റ്റൽ വോട്ടിങ്ങ് സൌകര്യം ഏർപ്പെടുത്തിയത്

അർഹരായ വോട്ടർമാർക്ക് വോട്ട് ചെയ്യാൻ എത്തേണ്ട സ്ഥലം ബന്ധപ്പെട്ട റിട്ടേണിംഗ് ഓഫീസർ അറിയിക്കും

ആവശ്യത്തിനുള്ള വാക്സിൻ ലഭൃമാണെന്നും മന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കർ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു യോഗ്യരായ എല്ലാവരും ഉടൻ തന്നെ വാക്സിനേഷൻ സ്വീകരിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു

ഇന്ന് ഒരു പുതിയ ഹോട്ട് സ്പോട്ടാണുള്ളത്

ഈ പുരസ്കാരം ലഭിക്കുന്ന ഏക സംസ്ഥാനമാണ് കേരളം വിശദാംശങ്ങളുമായി അഞ്ജന

സംസ്ഥാനങ്ങളുടെ കാറ്റഗറിയിൽ കേരളം മാത്രമാണ് ഈ അവാർഡിന് അർഹമായിരിക്കുന്നത്

കേരളത്തിലെ ക്ഷയരോഗപര്യവേഷണ സംവിധാനം രാജ്യാന്തരതലത്തിൽ തന്നെ ഏറ്റവും മികച്ചതാണെന്ന് വിദഗ്ധ സമിതി അഭിപ്രായപ്പെട്ടു

ന്യൂസ് ്ഡസ്ക് ആകാശവാണി സ്പീക്കർ സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന്റെ മൊഴി എന്ന പേരിൽ തനിക്കെതിരെ മാധ്യമങ്ങളിൽ വ്യന്റുകൊണ്ടിരിക്കുന്ന കാര്യം ശുദ്ധ അസംബന്ധവും വസ്തുതാ പ്രിരൂദ്ധ്വുമാണെന്ന് സ്പീക്കർ പി

വിദേശത്ത് വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാൻ ത്രീരുമാനിച്ചെന്നും അതിൽ നിക്ഷേപം ഉണ്ടെന്നും ഉള്ളതായി പൃറ്യപ്പെടുന്ന മൊഴി തീർത്തും അടിസ്ഥാന വിരുദ്ധമാണ് ആർക്കും അന്വേഷിച്ച് ഇക്കാര്യം ബോധ്യപ്പെടാവുന്നതാണെ്ന്നും സ്പീക്കർ വ്യക്തമാക്കി

ഷാജി മുസ്തീം ലീഗ് എംഎൽഎയും അഴീക്കോട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായ കെ

ഷാജി അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചതായി വിജിലൻസ് കണ്ടെത്തൽ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം കോടതിയിൽ സമർപ്പിച്ചു

സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ അന്ന്രിയ് കുറവ്

കാലാവസ്ഥ സംസ്ഥാനത്ത് ഉഷ്ണതര്്ഗത്തിന് സാധ്യതയെന്ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി

രോഗികളും പ്രായമായവരും കുട്ടികളും കടുത്ത ചൂടിൽ പുറത്തിറങ്ങരുതെന്നും മുന്നറിയിപ്പുണ്ട് കണ്ണൂർ കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിൽ ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി അടുത്ത മാസം ആദ്യത്തോടെ വേനൽമഴ സജീവമാകുമെന്നും അറിയിപ്പുണ്ട്